ത്തിന്റെ എട്ടാം ഗഡു വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്ര് മോദി നാളെ നിർവഹിക്കും

ആഴ്ചയ്ക്കിടയിൽ എടുത്ത്യാൽ മതിയെന്ന് കേന്ദ്ര നിർദ്ദേശം

മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു

റെഡ് അലർട്ട്

മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗസ്ഥിരീകരണം

വൃക്കരോഗിയായ തന്നെ വരാന്തയിൽ കിടത്തിയിരിക്കുകയാണെന്ന് നകുലൻ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത് വിവാദമായി

നിലവിൽ ഇത് ആറ് മുതൽ എട്ട് ആഴ്ചയ്ക്കിടയിൽ എടുക്കണമെന്നായിരുന്നു നിർദേശം

കോവിഡ് മുക്തരായവർ ആറ് മാസത്തിന് ശേഷമേ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ

പ്ലാസ്മ ചികിത്സയ്ക്ക് വിധേയരാവർ പന്ത്രണ്ട് ആഴ്ചയ്ക്ക് ശേഷം വാക്സിൻ സ്വീകരിച്ചാൽ മതി

ഓഡിറ്റ് ടീം രൂപീകരിക്കാൻ ൃഅത്ത് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റിക്കാണ് ചുമതല്ക്ത്രീപ്പിടിത്തം ഓക്സിജൻ ചോർച്ച തുടങ്ങിയ് അപകടങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ടു ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിലെ സുരക്ഷ ഉറപ്പാക്കി അപകടങ്ങൾ ങ്ഗീവാക്കാനാണ് നടപടി

അതേസമയം ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടറും നിയന്ത്രണം കടുപ്പിക്കുമെന്ന് പോലീസും വ്യക്തമാക്കി

നിലവിലെ കോവിഡ് സാഹചരൃം കണക്കിലെടുത്താണ് തീരുമാനം

ഇന്ന് രാവിലെയോടെയാണ് ന്യൂന മർദ്ദം രൂപപ്പെട്ടത്

ആലപ്പുഴ കോട്ടയം എറ്റ്ണ്ടുകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്

സുഹാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഴയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ഓരോ താലൂക്കുകളിലെയും സ്ഥിതിഗതികൾ വിലയിരുത്തി സമയോചിതമായ ഇടപെടലുകൾ നടത്താൻ ഡെപ്യൂട്ടി കളക്ടർമാർക്ക് നിർദേശം നൽകി മഴ ബാധിക്കാൻ സാധ്യതയുള്ള ്ചെല്ലാനം കൊച്ചി കോർപ്പറേഷൻ പറവൂർ കോതമംഗലം മുവാറ്റുപുഴ എന്നീ പ്രദേശങ്ങളിലെയും ദുരന്ത നിവാരണത്തിനുള്ള മാർഗനിർദേശങ്ങൾ കളക്ടർ നൽകി

മഴ കുട്ടനാട് മഴയെ തുടർന്ന് ആല്പ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി കുട്ടന്ട്ടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി

ചേർത്തല അമ്പലപ്പുഴ താലൂക്കിലെ തീരദേശത്ത് കടാലാക്രമണവും രൂക്ഷമാണ്

മ്യൂസിക് കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഈദുൽ ഫിത്വർ ആഘോഷം ഇത്തവണ വീടുകളിൽ ഒതുക്കുകയായിരുന്നു

ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വ്യോമാക്രമണം കൂടുതൽ രൂക്ഷമാകുകയാണ്

അതിനിടെ പ്രശ്ര്ന പരിഹാരത്തിനായി നയതന്ത്ര പ്രതിനിധിയെ നിയോഗ്ലിച്ചത്യായി യു

എസ് പ്രസിഡന്റ് ജോബൈസൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടു ആശയവിനിമയം നടത്തി